നരേന്ദ്രമോദി മാലി ദ്വീപിലെത്തി മാലി ദ്വീപിന്റെ നിഷാൻ ഇസുദ്ദീൻ പുരസ്ക്കാരം ശ്രീ

നികുതി പരിഷ്ക്കരണം ചർച്ചാവിഷയം

കാലവർഷം കേരള തീരത്തെത്തി

സാധ്യത ട്രോളിങ് നിരോധനം നാളെ അർധരാത്രി മുതൽ

അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാന്റ് മത്സരവും പുരോഗമിക്കുന്നു

ദിരാഷ്ട്ര സന്ദർശന ത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി മാലി ദ്വീപിലെത്തിയത് പ്രധാന മന്ത്രിയായി രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ തിനുശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശന മാണിത് വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണ മാണ് ലഭിച്ചത് ഇന്ന് വൈകിട്ട് മാലിയിലെ റിപ്പബ്ലിക് സ്കയറിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീ

വിദേശപൌരന്മാർക്ക് മാലദ്വീപ് നൽകുന്ന ഉന്നത പുരസ്ക്കാരമായ നിഷാൻ ഇസുദ്ദീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹീം മുഹമ്മദ് സ്വാലിഹ് വൈസ് പ്രസിഡന്റ് ഫൈസൽ നസീം സ്പീക്കർ മുഹമ്മദ് നഷീദ് എന്നിവർ അടക്കമുള്ള രാഷ്ട്ര പ്രമുഖന്മാരുമായി ശ്രീ നരേന്ദ്രമോദി കൂടിക്ക്മാഴ്ച നടത്തും മാലദ്വീപ് പാർലമെന്റിനെ അഭിസംബോധന ക്ഷ്യിട്ടുന്ന പ്രധാനമന്ത്രി രാജ്യ സുരക്ഷ സാമ്പത്തിക വളർച്ച എന്നീപ്യു്മായി ബന്ധപ്പെട്ട സുപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കും

വിവിധ കരാറുകളിൽ ഇന്ത്യയും ശ്രീലങ്കയും ഒപ്പു വയ്ക്കും കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

വോയിസ് ശ്രീലങ്കയിൽ ഇത്തവണത്തെ ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ സ്ഫോടന ങ്ങളിൽ കൊല്ലപ്പെട്ടവരോടുള്ള ആദര സൂചകമായും തീവ്രവാദത്തിനെ തിരെയുള്ള പോരാട്ടത്തിന് ഐകൃദാർഢൃം പ്രഖ്യാപിക്കുന്നതിനുമാ യാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലങ്കൻ സന്ദർശനം അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമായി മുന്നോട്ടുകൊണ്ടുപോകുക എന്ന ലക്ഷ്യവുമുണ്ട് ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ദോവലും വിദേശകാരൃ സെക്രട്ടറി വിജയ്ഗോയലും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്

ശ്രീലങ്ക യിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ

ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം സാമ്പ ത്തിക വികസനരംഗങ്ങളിലെ സഹകരണം തുടങ്ങിയവ ശ്രീലങ്കൻ നേതൃത്വവുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യും കഴിഞ്ഞതവണ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ശ്രീ

സാമ്പത്തിക തന്ത്രപ്രധാന മേഖലകളി ലുള്ള സഹകരണം ഇരുരാജൃങ്ങളും ഊഷ്മളമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യൂസ് ഡെക്സ് ആകാശവാണി

ജെ

സംഘട്ടിപ്പിച്ച അഭിനന്ദൻ സഭയിൽ സംസാരിക്കുക യായിരുന്നു പ്രധാനമന്ത്രീക്തിരഞ്ഞെടുപ്പിലെ വിജയം മാത്രമല്ല രാഷ്ട്ര സേവനത്തിനാണ് ബി ജെ

നമ്മുടെ നാട് ശുചിത്വപൂർണ്ണമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏവരും പങ്കാളികളാ കണം മൃഗസംരക്ഷണം മത്സൃബന്ധനം എന്നീ മേഖലകളിൽ സമഗ്ര വികസനം കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടാംതവണയും പ്രധാനമന്ത്രിയായശേഷമുള്ള മോദിയുടെ ആദ്യ പൊതു പരിപാടിയാണ് ഗുരുവായൂരിൽ നടന്നത് പരിപാടിയ്ക്കു ശേഷം പ്രധാനമന്ത്രി മാലദ്വീപിലേക്ക് പോയി

ഹൈദരാബാദിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഉപരാഷ്ട്രപതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അനിശ്ചിതമായി നീളുന്ന ഇത്തരം കേസുകൾ രാജ്യത്തിന് നല്ല തല്ലെന്നും ഇവ തീർപ്പാക്കാൻ പ്രത്യേക ഹൈക്കോടതി ബഞ്ചുകൾ സ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ ഇതിനുവേണ്ടിയുള്ള നടപടി എടു ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ആഗോള കമ്പനികൾക്ക് ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടു ത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും

ചൈനയുമായി തുടരുന്ന വ്യാപാര തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്റ്റീവൻ മ്യൂചിൻ പറഞ്ഞു

സാധാരണയിലും ഒരാഴ്ച ക്ലൈകി തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരള തീരത്തിലെത്തിയ്ക്കായി കേന്ദ്ര കാലാവസ്ഥാനിരീക്ഷണകേന്ദ്രം

കേരളത്തോടൊപ്പം തമിഴ്നാടിന്റെ തെക്കൻ ഭാഗങ്ങൾ ലക്ഷദ്വീപ് മാലദ്വീപ് എന്നിവിടങ്ങളിലും മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത മൂന്ന് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു

ട്രോളിംഗ് നിരോധനം ഫലപ്രദമായും സമാ ധാനപരമായും നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഫിഷറീസ് വകുപ്പ് സജ്ജീകരിച്ചു കഴിഞ്ഞു വിവിധ ജില്ലകളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട് തീരദേശത്തെ യുവാക്കളെ ഉൾപ്പെടുത്തി കടലിൽ പ്രത്യേക സുരക്ഷാ സേനയും സംസ്ഥാന ഗവൺമെന്റ് രൂപീകരി ച്ചിട്ടുണ്ട്

കോഴിക്കോട് റെയിൽവെ സ്റ്റേഷനിൽ പാർട്ടി പ്രവർത്ത കർ നൽകിയ സ്വീകരണ യോഗത്തിൽ സ്ഥംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൃതദേഹം നാട്ടിൽ എത്തിക്ട്രുന്ന്തിനുള്ള വിമാനയാത്ര എംബാം ചെയ്യുന്നതുൾപ്പെടെയുള്ളൂ ഖ്ചലവുകൾ ഗവൺമെന്റ് വഹിക്കുമെന്നും ശ്രീ

ബുധനാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഗ്വർണർ വജുഭായി ആർവാല പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി യുടെ ഓഫീസിന്റെ ഔദ്യോഗിക ടിറ്ററിൽ അറിയിച്ചു

ഒരെണ്ണം കോൺഗ്രസിനും രണ്ടെണ്ണം ജനതാദൾ എസ്സിനും വേണ്ടിയിട്ടു ള്ളതാണ്

ജെ

ഏഴുപേർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ്

ഓപ്പണർ ജെയിസൺ റോയ്ക്ക് സെഞ്ചറി

ഇന്തൃയുടെ രണ്ടാമത്തെ മത്സരം നാളെ ഓസ്ട്രേലിയയുമായി നടക്കും